ഇതിനായുള്ള സമഗ്രമായ നിയമം തയ്യാറാക്കി വരികയാണെന്ന് കേന്ദ്ര മന്ത്രി രവിശങ്കർ പ്രസാദ് പറഞ്ഞു

സുപ്രീംകോടതി മുൻ ജഡ്ജി ബി

സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ബിൽ കമ്മിറ്റി ഇതിനകം കരട് ബിൽ തയ്യാറാക്കിയിട്ടുണ്ട് ഈ രംഗത്തെ വിദഗ്ധരുമായി കൂടിയാലോചിച്ച ശേഷമാണ് ബില്ലിന് രൂപം കൊടുത്തിട്ടുള്ളത്

വൃവസ്ഥകൾ ലംഘിക്കുന്നവർക്ക് പിഴയും നഷ്ടപരിഹാരവും ബില്ലിൽ നിർദ്ദേശിക്കുന്നുണ്ട്

ഇതിനായി ദ്ദേശ്മീയ് ഇൻഫർമേഷൻ ഇൻഫ്രാസ്ട്രക്ചർ സംരക്ഷണ കേന്ദ്രം തൂട്ടങ്ങിയിട്ടുണ്ടെന്ന് കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദ് ലോക്സഭയെ അ്റിയിച്ചു ഏറ്റവും ഒടുവിലത്തെ ഭീഷണികൾ സംബന്ധിച്ച് മാർഗ്ഗനിർദ്ദേശങ്ങളും പുറപ്പെടുവിച്ചിട്ടുണ്ട്

രവിശങ്കർ പ്രസാദ് അറിയിച്ചു

മികച്ച പ്ലാറ്റ്ഫോം ശുചീകരണ സൌകരൃങ്ങൾ മേൽപ്പാല നിർമ്മാണ ലിഫ്റ്റുകൾ എസ്കലേറ്ററുകൾ എന്നിവ പദ്ധതിയുടെ ഭാഗമാണ്

പീയുഷ് ഗോയൽ പറഞ്ഞു

അനധികൃതമായി ഖനനം ചെയ്ത കൽക്കരി കോൾ ് ഇന്ത്യാ കമ്പനിക്ക് കൈമാറാനും ജസ്റ്റിസുമാരായ അശോക് ഭൂർഷ്ടങ്നും കെ

സംസ്ഥാനത്ത് അനുമതിയോടെയുള്ള ഖനനം തുടരാനും കോടതി അനുവാദം നൽകി

രാജ്യസഭ ഇന്ന് അംഗീകാരം നൽകിയ ബിൽ നേരത്തെ ലോക്സഭ പാസാക്കിയിരുന്നു കേന്ദ്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അധ്യാപകരായി നിയമനം ലഭിക്കാൻ പട്ടികജാതി പട്ടിക വർഗ്ഗ വിഭാഗങ്ങൾക്കും വിദ്യാഭ്യാസപരമായും സാമ്പത്തിക മായും പിന്നാക്കം നിൽക്കുന്നവർക്കും അവസരം ലഭിക്കാൻ ബിൽ വഴിയൊരുക്കും കേന്ദ്ര സർവ്വകലാശാലകളിൽ നിലവിലുള്ള ഏഴായിരത്തോളം ഒഴിവുകളിൽ നിയമനം നടത്താൻ ബിൽ പാസാക്കി യതിലൂടെ സാധിക്കുമെന്ന് മാനവ വിഭവശേഷി വികസന വകുപ്പ് മന്ത്രി രമേഷ് പൊഖ്റിയാൽ നിഷാങ്ക് അഭിപ്രായപ്പെട്ടു

ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ പരാജയത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്താണ് രാജിയെന്ന് രാഹുൽ ഗാന്ധി വ്യക്തമാക്കി പാർട്ടിയുടെ ഭാവിക്കും വളർച്ചയ്ക്കും ഇത് ഗുണകരമാകും അധികാരത്തിന് വേണ്ടിയായിരുന്നില്ല തന്റെ പോരാട്ടമെന്നും ആരോടും വെറുപ്പോ വിദ്ദേഷമോ ഇല്ലെന്നും ശ്രീ

പിൻഗാമിയെ തെരഞ്ഞെടുക്കാൻ പാർട്ടി പ്രവർത്തക സമൂിതി ഉടൻ വിളിക്കണമെന്ന് നേരത്തെ വാർത്താ ലേഖകരോട് രാഹുൽ ഗ്രാസ്ഡി പറഞ്ഞു

ക്രിമിനൽ ട്രാക്കിംഗ് നെറ്റ്വർക്കിൽ ഇവ ലഭ്യമാണ്ണെന്ന് കേന്ദ്ര സഹമന്ത്രി ജി

സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളുമായും വിവരങ്ങൾ പങ്കുവയ്ക്കുന്നതാണ് നെറ്റ്വർക്ക് സംവിധാനമെന്ന് കേന്ദ്രമന്ത്രി രേഖാമൂലം നൽകിയ മറുപടിയിൽ വ്യക്തമാക്കി

സ്റ്റേഡിയം നവീകരണ ത്തിലെ കൺസൾട്ടൻസിയുമായി ബന്ധപ്പെട്ട തട്ടിപ്പിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത്

രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ തുടരുന്നു ഒരു റിപ്പോർട്ട്

ദേശീയ ദുരന്ത നിവാരണ സേന രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ തുടരുന്നു താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാണ്

അതേസമയം മുംബൈയിൽ കനത്ത മഴയ്ക്ക് അല്പം ശമനമുണ്ടായതോടെ നഗരം സാധാരണ നിലയിലേക്ക് മടങ്ങുകയാണ് അടുത്ത രണ്ട് ദിവസം കൂടി ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്ക് മസാധൃതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു

വിമാനത്താവളത്തിന്റെ പ്രവർത്തനം സാധാരണ നിലയിലാക്കാനുള്ള ശ്രമങ്ങൾ ഊർജ്ജിതമാണ്

വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഈ അധ്യയന വർഷം മുതൽ ഉത്തരവ് ബാധകമാക്കി

ജോണി ബെയർസ്റ്റോ ഏകദിനത്തിലെ ഒമ്പതാം സെഞ്ചറിയും സ്വന്തമാക്കി

സൌരഭ് കാനഡയുടെ സൻ കീർത്തിനെയും ലക്ഷ്യാസെൻ ചൈനയുടെ വെങ്ഹോങ്യാങിനെയും അടുത്ത റൌണ്ടിൽ നേരിടും

ന്യൂസ് ഓൺ എയർ ഒഫീഷ്യൽ യു ട്യൂബ് ചാനലിലും ഇത് കേൾക്കാം